എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നത് തന്റെ ഗവൺമെന്റ് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി രാജ്യം വികസനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പാതയിലെന്നും ശ്രീ

രാജ്യത്തെ ഓഹരി വിപണികൾ റെക്കോർഡ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു

സുതാര്യതയ്ക്കും കഠിനാധാനത്തിനും പകരം വയ്ക്കാനൊന്നുമില്ലെന്നും ശ്രീ മോദി പറഞ്ഞു വാരാണസിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം വോയ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാനായി ശ്രീ

രാജ്യം തൃക്ക്സ് പ്രധാനമന്തിയായി തെരഞ്ഞെടുത്തുവെങ്കിലും താനിപ്പോഴും കാശിയിലെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നു ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നും ശ്രീ

മണ്ഡലത്തിലെ ഓരോ പാർട്ടി പ്രവർത്തകനും സ്വയമൊരു്മോദിയായി മാറിയയാണ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത്തെന്നും അദ്ദേഹം അനുസ്മരിച്ചു രാജ്യം വികസനത്തിന്റെ പ്പാതയിലാണെന്നും കഴിഞ്ഞ കാലയളവിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവ്സ്ഥ ഏറെ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു ഭരണകൂടവും പാർട്ടിയും തമ്മിലുള്ള ഇഴയടുപ്പം വലുതാണെന്നും പ്രവർത്തകർക്കും പ്രവർത്തനങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുമെന്നും ശ്രീ

നേരത്തെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി അവിടത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിലും സംബന്ധിച്ചു

രാവിലെ ഗാങ്ടോക്കിലെ പൾസോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണ്ണർ ഗംഗാപ്രസാദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

എസ് പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ പവൻ ചാമ്ലിങും എം എൽ എമാരും അവസാന നിമിഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്ക്കരിച്ചു

ജെ

ഇന്ന് ഇറ്റാനഗറിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ ജെ

ഖണ്ഡുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേയ്ക്ക് തെരുങ്ങ്കൂടുക്കുകയായിരുന്നു ശേഷം ശ്രീ

ബിഫ്രി്മിശ്രയെ സന്ദർശിച്ച് ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെടുകൃയായിരുന്നു

അഭ്യൂഹങ്ങളിലും കെട്ടിച്ചമച്ച് വാർത്തകളിലും വിശ്വസിക്കരുതെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നും കോൺഗ്രസ് വക്താവ് രൺവീർസിംഗ് സുൽജെവാല മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു

ഉപരാഷ്ട്രപതി എം

ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നെഹ്റു വഹിച്ച എക്കാലവും പങ്ക് സ്മരിക്കുമെന്നും ശ്രീ

മുൻ മൻമോഹൻസിംഗ് യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ ന്യൂഡൽഹിയിൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ശാന്തിവനിൽ പുഷ്പ്പാർച്ചന നടത്തി

വെറ്റില ശേഖരിക്കുന്ന തൊഴിലാളികളും റോഡ് നിർമ്മാണ കരാറുകാരും നക്സലുകൾക്ക് കൈക്കൂലി കൊടുക്കാറുണ്ടെന്ന് ഇയാൾ പോലീസിനോട് വ്യക്തമാക്കി

അന്യ സംസ്ഥാന ബോട്ടുകൾ ട്രാളിങ് നിരോധനത്തിന് മുൻപ് തീരം വിട്ടു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കടൽ സുരക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും ബയോമെട്രിക് ഐ

ഏപ്രിൽ ഒന്നിന് റോബർട്ട് വദ്രയ്ക്ക് വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് ജസ്റ്റിസ് ചന്ദേർ ശേഖർ വദ്രയ്ക്ക് നോട്ടീസ് അയച്ചുർമുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയ്ക്ക്ട്ട്ട്ട്ട്റിന്റെ ആവശ്യത്തിൽ വദ്രയുടെ കൂട്ടാളി മനോജ് അറോറയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്

വാരാണസിയിലെ കോളേജ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കുറ്റരോപിതനാണ് അതുൽ റായ് അറസ്റ്റിൽ നിന്നും റായ്ക്ക് ഇളവ് അനുവദിക്കണമെന്ന ഹർജിയിൽ ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റീസ് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ അവധികാല ബഞ്ചാണ് വാദം കേട്ടത് അറസ്റ്റിൽ നിന്നും റായ്ക്ക് ഇടക്കാല സംരക്ഷണം നൽകണമെന്ന ആവശ്യം നേരത്തെയും സുപ്രീം കോടതി നിരസിച്ചിരുന്നു

ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

കള്ളനോട്ടുകൾ വാങ്ങാനെത്തിയ മൂന്ന് നേപ്പുഴ്ളി പ്പൌരന്മാരും അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണ്ണ്ട് ആരംഭിച്ചു

ഇനിയൊരു ദീർഘിപ്പിക്കലിന്റെ ആവശ്യമില്ലെന്നാണ് പ്രതീക്ഷയെന്നും വിദേശ അംബാസിഡർമാരുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു

എൽ എൻ ഉപാധ്യക്ഷ സ്ഥാനത്തേയ്ക്ക് നിയോഗിച്ചതിനെ ചോദ്യം ചെയ്തുള്ള പരാതി പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു പൊതു പദവികൾ വഹിക്കാൻ മറിയം അയോഗ്യയാണെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് അംഗങ്ങളാണ് കമ്മീഷനെ സമീപിച്ചത് പാക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടങ്ങിയ മൂന്നംഗബെഞ്ച് പരാതിയിൽ വാദം കേട്ടു വിഷയത്തിൽ മറിയത്തിന്റെ പ്രതികരണം ആവശ്യപ്പെട്ട് കമ്മീഷൻ നോട്ടീസയച്ചിട്ടുണ്ട്

ൃജ്പ്പൂർ് സന്ദർശനത്തിനിടെ ഇരു രാഷ്ട്ര നേതാക്കളും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ആവൃശ്യം ഉന്നയിച്ചത് അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര്യ ബ്ന്ധത്തിൽ ഉണ്ടായ അകൽച്ച പരിഹരിച്ച് മുന്നോട്ട് പോകൂക്യാ്ണ് തന്റെ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി